എസ്

ശ്രീലങ്കൻ പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റിന്റെ നടപടി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു

ബ്രക്സിറ്റ് കരാർ പരിശോധിക്കാൻ അടിയന്തരമായി ബ്രിട്ടീഷ് മന്ത്രിസഭ ഇന്ന് ചേരും

മൈതാനിയിൽ ഇന്ന് കൊടിയേറും

രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം സിംഗപ്പൂരിലെത്തിയത് കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

സിംഗപ്പൂരിൽ സംഘടിപ്പിക്കുന്ന ഫിൻടെക് ആഘോഷ പരിപാടികളെ പ്രധ്താനമന്ത്രി ഇന്ന് രാവിലെ അഭിസംബോധന ചെയ്യും

നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷിതല ചർച്ചകൾ നടത്തും

എസ് വൈസ് പ്രസിഡന്റ് മൈക് പെൻസുമായും സിംഗപ്പൂർ ആസ്ട്രേലിയ തായ്ലന്റ് എന്നീ രാജൃങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഒ

രാജസ്ഥാൻ ഗുജറാത്ത് പശ്ചിമബംഗാൾ ബീഹാർ എന്നീ നാല് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതിയുടെ രണ്ടാംഘട്ടമെന്ന് ഉപരിതല ഗതാഗത മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഐ നടപ്പുവർഷം ഗ്രീഗ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടത്തിയ റോഡ് ഷോകൾ വിൻ പ്രിജയമായിരുന്നു

ശ്രീഹരികോട്ടയിൽ നിന്നാണ് വിക്ഷേപണം കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

എസ്

വി കൂതിച്ചുയരുമെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു

എസ് എൽ വി മാർക്ക് ദ യുടെ രണ്ടാമത്തെ വലിയ വിക്ഷേപണ വികസന പദ്ധതിയാണ് ഇത് നാല് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിക്കാൻ ജി എസ് എൽ

വാർത്താ വിനിമയ ഉപഗ്രഹത്തിൽ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ളതാണ് ജി

എസ് ആർ ഒ യുടെ അഞ്ചാമത്തെ വിക്ഷേപണമാണ് ഇന്ന് നടക്കുന്ന ദൌത്യം

പുനപരിശോധനാ ഹർജികൾ തുറന്ന കോടതിയിൽ വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു

സംസ്ഥാനതലത്തിൽ തർക്ക പരിഹാരത്തിനായി സംസ്ഥാന സമിതിയും ജില്ലാ തലത്തിൽ ജില്ലാ സമിതിയും ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുമാണ് നിലവിൽ വരിക എന്ന് ജമ്മു ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താവിന്റെ അറിയിപ്പിൽ പറയുന്നു

ആഗോളതലത്തിൽ കസ്റ്റംസ് രംഗത്ത് വരുത്തേണ്ട ഷ്യാറ്റ്വർത്തനങ്ങളെ സംബന്ധിച്ചാണ് സമ്മേളനം പ്രധാനമായും ചർച്ചപ്പെയ്യുന്നത്

കേന്ദ്ര ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഈ അറിയിപ്പ് ഉള്ളത്

മേളയിൽ അഫ്ഗാനിസ്ഥാൻ രാഷ്ട്രവും നേപ്പാൾ ലക്ഷ്യരാഷ്ട്രവുമായിരിക്കും

പ്പുതിയ പോർട്ടലിന്റെ പ്രാഥമിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ നട്പ്പില്ലാവ്ുകയെന്നും പൂർണ്ണതോതിലെ പ്രവർത്തനം അടുത്തമാസം മധ്യ്ത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നും തപാൽ വകുപ്പിന്റെ അറിയിപ്പിൽ പ്രറയുന്നു

നിരവധി തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിരോധനമാണ് നീട്ടിയത്

ഇതേത്തുടർന്ന് ഭൂരിപക്ഷം തെളിയിക്കാൻ ശ്രീലങ്കൻ പാർലമെന്റ് ഇന്ന് വിളിച്ചുചേർത്തിട്ടുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള മൂന്നംഗ ബഞ്ചാണ് ഇന്നലെ പ്രസിഡന്റ് നടപടിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിന്മേൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് അടുത്തമാസം ഏഴ് വരെ പ്രസിഡന്റിന്റെ വിജ്ഞാപനം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതിനാൽ ജനുവരി അഞ്ചിന് തിരഞ്ഞെടുപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് താൽക്കാലികമായി നിർത്തലാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു

യൂറോപ്യൻ യൂണിയനുമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കരട് രേഖ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ യുടെ ഓഫീസാണ് അറിയിച്ചത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഇക്കാര്യത്തിൽ യോജിപ്പുണ്ടാകുമെന്ന് യൂറോപ്യൻ യൂണിയൻ വക്താക്കൾ ബ്രസൽസിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു

വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിനെതിരായി ഭീകരപ്രവർത്തനം നടത്താൻ ജവദ് നസ്റള്ള അടുത്തിടെ ഭീകരരെ റിക്രൂട്ട് ചെയ്തതായി അറിവുണ്ടെന്ന് യു എസ് ആഭ്യന്തര മന്ത്രാലയ വക്താവ് വാഷിംഗ്ടണിൽ പറഞ്ഞു

തമിഴ്നാട് തീരത്തേയ്ക്ക് ചുഴലിക്കാറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട്ടിലെ വടക്കൻ തീരത്തും പോണ്ടിച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്നാണ് അറിയിപ്പ് ഗുഡലൂർ നാഗ്പട്ടണം തിരുവരൂർ തുഞ്ചാവൂർ പുതുകോട്ട രാമനാഥപൂരം എന്നിവിടങ്ങളിൽ നാളെ പ്രശ്നക്തിമായ മഴ ലഭിക്കുമെന്നാണ് നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്

ഗാസയിൽ അതിക്രമങ്ങൾ അവസാ നിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്ന പക്ഷം തങ്ങൾ വെടിനിർത്ത ലിന് ഒരുക്കമാണെന്ന് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ അറിയിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ ഔദ്യോഗിക കാര്യാലയവും സൈന്യവും നിർദ്ദേശത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല

ബീഹാറിൽ പ്രസിദ്ധമായ നദീതീരങ്ങളിൽ തീർത്ഥാടകർ പ്രത്യേക പൂജയ്ക്കായി ഒത്തുചേർന്നിട്ടുണ്ട്